കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളും പീഢനങ്ങളും ഇല്ലാതാ ക്കാൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ സന്ദേശ പ്രചാ രണ ബൈക്ക് റാലി രാവിലെ മുഖ്യമന്ത്രി ഫ്ളാഗ്ഓഫ് ചെയ്യും

അഞ്ച് കോടിയോളം കർഷകർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭി ക്കുമെന്നാണ് കണക്കാക്കുന്നത്

പ്പാസ്റ്റിക് ഉപയോഗം ഉപേക്ഷിക്കാനും പരിസ്ഥിതി സുരക്ഷാ പ്രചാ രണത്തിൽ പങ്കാളികളാകാനും ചടങ്ങിൽ പ്രധാനമന്ത്രി ജനങ്ങളെ ആഹ്വാനം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നാളെ മുതൽ ഒരാഴ്ച്ച സേവാ സപ്തഹ് സംഘടിപ്പിക്കാൻ ബിജെപി തീരുമാനിച്ചു എല്ലാ പാർട്ടി എംപിമാരും എംഎൽഎമാരും അവരുടെ മണ്ഡലങ്ങളിൽ സേവാവാരത്തിന്റെ ഭാഗമായി വിവിധ ക്ഷേമ പദ്ധതി കൾ നടപ്പാക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി അരുൺ സിങ്ങ് ഡൽഹിയിൽ അറിയിച്ചു രക്തദാന ക്യാമ്പുകൾ സൌജന്യ ആരോഗൃ പരിശോധന അനാ ഥർക്ക് ഭക്ഷണ വിതരണം തുടങ്ങിയ പരിപാടികൾക്കായിരിക്കും പ്രാമു ഖ്യം ഡൽഹി എയിംസിലെ പാവപ്പെട്ട രോഗികൾക്ക് ബിജെപി അധ്യ ക്ഷൻ അമിത്ഷായും വർക്കിങ്ങ് പ്രസിഡന്റ് ജെ

നദ്ദയും പഴങ്ങൾ വിതരണം ചെയ്യും

സംസ്ഥാനങ്ങളിൽ പാർട്ടിയെ ശക്തി പ്പെടുത്തുന്നതിനെ കുറിച്ചും അവർ ചർച്ച ചെയ്യും

നിർമ്മലഗിരി കോളജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും ഉച്ചക്ക് ശേഷം കോഴിക്കോട് നടക്കാവ് ഗേൾസ് ഹയർസെക്കൻറി സ്കൂളിലും വൈകീട്ട് കോട്ടക്കൽ ചങ്കുവെട്ടി രാജാസ് ഗവൺമെന്റ് ഹയർ സെക്കൻറിയിലും റാലിക്ക് സ്വീകരണം നൽകും നാളെ രാവിലെ എറണാകുളം മഹാരാജാസ് കോളേജിലും വൈകീട്ട് ആല പ്പുഴ ബീച്ചിലും കൊല്ലം ബീച്ചിലും സ്വീകരണം നൽകും റാലി യുടെ ആദ്യഘട്ടം മറ്റന്നാൾ തിരുവനന്തപുരത്ത് സമാപിക്കും മതനിരപേക്ഷത തകരുന്ന ഘട്ടങ്ങളിൽ ശക്തമായി പ്രതികരിക്കാൻ രാജ്യത്തെ മതേതര കക്ഷികൾ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ ആവശ്യപ്പെട്ടു കണ്ണൂർ മുണ്ടയാട് സിപിഐഎം ലോക്കൽ കമ്മറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേ ഹം പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ രാജ്യത്ത് തുടരുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്നും പിണറായി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ധർമടത്തെ ഓഫീസിൽ പൊതുജനങ്ങളിൽ നിന്ന് നിവേദനങ്ങൾ സ്വീകരിക്കും

കൊച്ചി മരടിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കണമെന്ന ഉത്ത രവിനെതിരെ ഫ്ളാറ്റുടമകൾ സുപ്രീം കോടതിയിൽ തിരുത്തൽ ഹർജി ഫയൽ ചെയ്തു ഗോൾഡൻ കായലോരം അപ്പാർട്ട്മെന്റിലെ താമ സക്കാരാണ് ഹർജി നൽകിയത് ഫ്ളാറ്റിലെ താമസക്കാർ രാഷ്ട്രപ തിക്ക് ഇ മെയിലായി സങ്കട ഹർജി അയക്കാനും തുടങ്ങി താമസക്കാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിപിഐഎം നാളെ ബഹുജന മാർച്ച് നടത്തും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാല കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും മരട് ഫ്ളാറ്റ് പ്രശ്നം ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് സർവ്വകക്ഷിയോഗം വിളിക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടിരുന്നു

ഒരു സുപ്രഭാതത്തിൽ അവരെ തെരുവിൽ ഇറക്കിവിടു ന്നത് മനുഷ്യത്വപരമല്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു പാലാ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും രണ്ടാം ഘട്ട പ്രചരണ പരിപാടികളിലേക്ക് കട ക്കുന്നു എൻഡിഎ സ്ഥാനാർത്ഥി എൻ ഹരിയുടെ പ്രചാരണ പര്യ ടനം ഇന്നലെ മുത്തോലി പഞ്ചായത്തിൽ നിന്ന് തുടങ്ങി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ

രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ചതയദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന സ്ഥാനാർത്ഥി നാളെ പര്യടനം പുനരാരംഭിക്കും യുഡിഎഫ് സ്ഥാനാർത്ഥി ജോസ് ടോമിന്റേയും എൽഡിഎഫ് സ്ഥാനാർത്ഥി മാണി

കാപ്പന്റേയും പ്രചാരണ പര്യടനം നാളെ തുട ങ്ങും ജോസ് ടോമിന്റെ പര്യടനം മേവിടയിൽ എഐസിസി ജന റൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും

സി കാപ്പന്റെ പര്യടനം തലപ്പലത്ത് മന്ത്രി എം

മണി ഉദ്ഘാടനം ചെയ്യും ് സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗം വിളിക്കണമെന്ന് മന്ത്രി ഡോ തോമസ് ഐസക് ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സംയുക്തമായി കമ്പോളങ്ങളിൽ ഇടപെടണമെന്നും സംസ്ഥാനങ്ങളുടെ പശ്ചാത്തല സൌകര്യ വികസനത്തിനായി കേന്ദ്രം കൂടുതൽ വായ്പ നൽകണമെന്നും മന്ത്രി നിർദേശിച്ചു

ഗുരുഭക്തരും ശ്രീനാ രായണ പ്രസ്ഥാനങ്ങളും ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ലോക മെമ്പാടും ജയന്തി ആഘോഷിക്കും ഗുരുവിന്റെ ജന്മസ്ഥലമായ ചെമ്പ ഴന്തി ഗുരുകുലത്തിൽ രാവിലെ മുതൽ വിശേഷാൽ പുജയും പ്രാർത്ഥ നയും തുടങ്ങി

മഹാസമാധി സ്ഥലമായ വർക്കല ശിവഗിരി മഠത്തിൽ രാവിലെ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ പതാക ഉയർത്തും

മുരളീധരൻ ജയന്തി സമ്മേ ളനം ഉദ്ഘാടനം ചെയ്യും

രാവിലെ ചേളന്നൂർ ശ്രീനാരായണ മന്ദിരത്തിൽ ഗുരുജയന്തി സാംസ്കാരിക സമ്മേളനം മന്ത്രി എ

ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കൊല്ലത്ത് എസ്എൻ ട്രസ്റ്റ് എസ്എൻഡിപി യോഗം കൊല്ലം യൂണിയൻ എന്നിവയുടെ നേതൃത്വ ത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും

ക്ഷേത്രങ്ങളിലെ പരമ്പരാഗത ആചാരനുഷ്ഠാനങ്ങൾ സംര ക്ഷിക്കണമെന്ന് ഇന്നലെ ചേർന്ന സംസ്ഥാന കൌൺസിൽ ആവശ്യ പ്പെട്ടു ഇന്ന് രാവിലെ ചേരുന്ന പ്രതിനിധി ്സമ്മേളനം കേന്ദ്രമന്ത്രി പ്രതാപ് ചന്ദ്ര സാരംഗി ഉദ്ഘാടനം ചെയ്യും

ഓപ്പണർ ലോകേഷ് രാഹുലിനെ ഒഴിവാക്കി

തുല്യ പോയിന്റുകൾ നേടി കേരളവും മിസോറാമും ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു എന്നാൽ ഗോൾ അശാശരിയുടെ അടിസ്ഥാനത്തിൽ മിസോറാം യോഗ്യത നേടുകയായിരുന്നു അവസാന പൂൾ മത്സരത്തിൽ ബംഗ്ലാദേശ് എയർ ഫോഴ്സിനെ കേരളം ഒന്നിനെതിരെ ആറ് ഗോളിന് തോൽപ്പിച്ചിരുന്നു ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായി പൊന്നാനി ബീയം കായലിൽ നടന്ന വള്ളംകളിയിൽ പുറങ്ങ് ഫിറ്റ്വെൽ ക്ലബിന്റെ കായൽകുതിര ജേതാക്കളായി

സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ വള്ളംകളിയും നവീകരിച്ച പവിലിയനും ഉദ്ഘാടനം ചെയ്തു പായിപ്പാട് ജലോത്സവം ഇന്ന്

അരുണാചൽ പ്രദേശിൽ ദേശീയ സീനിയർ വനിതാ ഫുട്ബോ ളിൽ കേരളത്തിന് ജയം ചണ്ഡീഗഡിനെ മറുപടിയില്ലാത്ത എട്ട് ഗോളി നാണ് കേരളം തോൽപ്പിച്ചത്

കുമരകം കവണാറ്റിൻകര ടൂറിസം ജലമേളയിൽ ഇരുട്ടുകുത്തി ഗ്രേഡ് വൺ വിഭാഗത്തിൽ കൈപ്പുഴ മുട്ട് എൻസിബിസി ബോട്ട് ക്ലബ് ചാമ്പ്യൻമാരായി കുമരകം സ്റ്റാർ ബോട്ട് ക്ലബിന്റെ മാമ്മൂടൻ രണ്ടാം സ്ഥാനത്തെത്തി

എസ് സ്റ്റേഡിയത്തിൽ നടക്കും

തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിൽ വാഹനാപകടത്തിൽ മലപ്പുറം കുറ്റി പ്പുറം പേരശന്നൂർ സ്വദേശികളായ നാലുപേർ മരിച്ചു ഏർവാടി തീർത്ഥാടനത്തിന് പോയ കുടുംബത്തിലെ ഉമ്മയും രണ്ട് മക്കളും കാർ ഡ്രൈവറുമാണ് മരിച്ചത് ഇന്നലെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി യോടെ ഇവർ സഞ്ചരിച്ച കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുക യായിരുന്നു

ഇവർ മധുര മെഡിക്കൽ കോളജിലും ഡിണ്ടിഗൽ ഗവൺമെന്റ് ആശുപത്രികളിലും ചികിത്സയിലാണ് അപകടത്തിൽപ്പെട്ട കാറിന് പിന്നിൽ ബൈക്കി ടിച്ച് തമിഴ്നാട് സ്വദേശിയായ ഒരാളും മരിച്ചു എഴുത്തുകാരനും സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരണ വിഭാഗം നിർവാഹക സമിതിയംഗവുമായ ചെറിയനാട് ശിവരാമൻ നിര്യാതനാ യി

ഉച്ചകഴിഞ്ഞ് മേലുകാവ് ക്രൈസ്റ്റ് കത്തീഡ്രൽ പള്ളിയിൽ സംസ്കാരം നടക്കും പ്രളയകാലത്തും ഓണത്തിന്റെ പ്രഭ മങ്ങാതിരിക്കാൻ സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയതായി മന്ത്രി ടി

കോഴിക്കോട് ജില്ലാതല ഓണാഘോഷ സമാപന സമ്മേ ളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ തല പരിപാടികൾക്ക് തുടക്കമായി മൂന്നാറിൽ വാരാഘോഷ പരിപാ ടികൾ ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ഗോവയിലേക്ക് കടത്താൻ ശ്രമിച്ച ഒരു കോടി രൂപ വിലവരുന്ന ചന്ദനമുട്ടികളുമായി ഒരാളെ കാസർകോട് പൊലീസ് അറസ്റ്റ് ചെയ്തു കാസർകോട് വോർക്കോടിയിലെ ഇബ്രാഹിമാണ് പിടിയിലായത് ഉപ്പള കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചന്ദനക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് പൊലീസ് പറഞ്ഞു